മൂന്ന് ദിവസത്തെ കേരള സന്ദർശനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകീട്ട് തിരു വനന്തപുര ത്തെത്തും ും ആലപ്പുഴ ജില്ലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്ത നങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവലോ കനം ചെയ്യും ു

സംസ്ഥാന പൊലീസ് ഫുട്ബോളിൽ മലപ്പുറം എം എസ്പി ചാമ്പ്യൻമാരായി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും വൈകീട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്ര പതി രാത്രി രാജ്ഭവനിൽ തങ്ങും

വൈകീട്ട് അഞ്ചരയ്ക്ക് പ്രത്യേക വിമാനത്തിൽ കൊച്ചിയി ലേക്ക് പോകുന്ന രാം നാഥ് കോവിന്ദ് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ താമസിക്കും ചൊവാഴ്ച രാവിലെ എറണാകുളം ബോൾഗാട്ടി പാലസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കു മൊപ്പം പ്രാതൽ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ഹെലികോപ്ടറിൽ തൃശൂരിലേക്ക് പോകും

അവിടെനിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന രാം നാഥ് കോവിന്ദ് ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ദർശനം നടത്തും രണ്ടേമുക്കാലോടെ കൊച്ചിയിൽ തിരിച്ചെത്തി പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും

പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ഇത് നടപ്പാക്കു ന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തര വൃവസായ യൂണിറ്റുകളുടെ ചരക്കുസേവന നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്രസഹ്മന്ത്രി ശിവപ്രസാദ് ശുക്ല യുടെ നേതൃത്വത്തിൽ ആറംഗ് സംസ്ഥാന മന്ത്രിതല സംഘം രൂപീകരിക്കാനും ഇന്നലെ ചേർന്ന ജി എസ് ടി കൌൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ആറ് മാസത്തിനകം സംഘം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കും

ആലപ്പുഴ മെഡിക്കൽ കോളജ് ഹാളിൽ ഇന്ന് രാവിലെ ചേരുന്ന അവലോകന യോഗ ത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരും ജനപ്രതിനി ധികളും ചീഫ് സെക്രട്ടറിയും വകുപ്പുമേധാവികളും പങ്കെ ടുക്കും എന്നാൽ കുട്ടനാട്ടിലെ വെളളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കില്ല എന്നാണ് റിപ്പോർട്ട് ഇതിൽ പ്രതിഷേധിച്ച് അവലോകന യോഗ ത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു

ഏഴ് ദുരിതാശ്ചാസ് ക്യാമ്പുകൾ മാത്ര മാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ പ്രപ്രവർത്തിക്കു ന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നെടുമുടി മങ്കൊമ്പ് മേഖലകളിൽ റോഡിൽ വെളളമുണ്ടെങ്കിലും സ്ഥകാര്യ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രസംഘം ബുധ നാഴ്ച കുട്ടനാട്ടിലെത്തും കോഴി ക്കോട് ഉരുൾപൊട്ടലുണ്ടായ കട്ടിപ്പാറ മേഖലയും തകർന്ന താമരശ്ശേരി ചുരം റോഡും കേന്ദ്ര സംഘം വരുന്ന വ്യാഴാഴ്ച സന്ദർശിക്കും ഉരുൾപൊട്ട ലിലെ നാശനഷ്ടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്രസംഘത്തിനു നൽകാൻ ഇന്നലെ താമരശ്ശേരി യിൽ ജില്ലാകലക്ടർ വിളിച്ച യോഗം തീരുമാനിച്ചിരു ന്നു നിലവിൽ ഭീഷണിയുണ്ടാക്കുന്ന പാറകളും മണ്ണും നീക്കം ചെയ്യാനും റോഡുകൾ സഞ്ചാരയോഗൃമാ ക്കാനും ഉടൻ നടപടിയെടുക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും മുൻഗണനാക്രമം തീരുമാനിക്കു ന്നതിനും ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മഴയും നീരൊഴുക്കും കുറഞ്ഞതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധന മാത്രം

മൂലമറ്റം വൈദ്യുത നിലയത്തിൽ ഉൽപാദനം ഇന്നലെയും പൂർണതോതിൽ നടന്നു

മഴ കുറയുകയും വൈദ്യുതി ഉൽപാദനം പൂർണമായ തോതിൽ നടക്കുകയും ചെയ്താൽ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട ആവശ്യം വരില്ലെന്നാണ് വിലയിരുത്തൽ

ജലനിരപ്പ് ഉയർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ മാത്രമാണ് മലമ്പുഴ പദ്ധതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്

ഷട്ടറുകൾ ഒൻപത് സെന്റീമീറ്റർ ഉയർത്തിയതോടെയാണ് വൈദ്യുതിഉത്പാദനം ആരംഭിച്ചത്

കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഓപ്പറേറ്റിംഗ് മാനുവൽ തമിഴ്നാട് കൈമാറിയിരുന്നില്ല ഈ മാസം തന്നെ മാനുവൽ സമർപ്പിക്കാമെന്ന് തമിഴ്നാട് സമ്മതിച്ചു അതേസമയം മഴ കനത്ത് ജലനിരപ്പ് ഉയർന്നാലും അണക്കെട്ടു സുരക്ഷിതമാണെന്ന് മേൽനോട്ട സമിതി ചെയർമാൻ അണക്കെട്ട് സന്ദർശിച്ചശേഷം പറഞ്ഞു

ബസ്സു കളും ചരക്കുവാഹനങ്ങളും ഓട്ടോ ടാക്സി വാഹന ങ്ങളും ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കോ ഓർഡിനേഷൻ കമ്മറ്റി കോഴിക്കോട്ട് അറിയിച്ചു

രാവിലെ പത്തരയ്ക്കാണ് മത്സരം സെമിയിൽ ജപ്പാന്റെ അകാനെ യമഗുച്ചിയെയാണ് സിന്ധു തോൽപ്പിച്ചത് തുടർച്ചയായ രണ്ടാം വട്ടമാണ് സിന്ധു വനിതാസിംഗിൾസ് ഫൈനലിൽ എത്തുന്നത് മലപ്പു റത്ത് സ്മാപിച്ച സംസ്ഥാന പൊലീസ് ഫുട്ബോളിൽ മലപ്പുറം എം എസ് പി ചാമ്പ്യൻമാരാ യി ടൈ ബ്രേക്കറിൽ പാലക്കാട് കെ എ പി രണ്ടാം ബറ്റാലിയനെയാണ് എം എസ് പി തോൽപ്പിച്ചത്

ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് എട്ട് സ്വർണ്ണം നേടി മുന്നിട്ടു നിൽക്കുകയാണ്

പട്ടികവിഭാഗങ്ങളുടെ ജീവി തനിലവാരം ഉയർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബ ദ്ധമാണെന്നും പേരാമ്പ്ര ചേർമല കോളനിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുപയോഗിച്ചു നിർമ്മിച്ചു ഏഴ് വീടുക ളുടെ താക്കോലുകൾ കൈമാറിയ മന്ത്രി പറഞ്ഞു ഇടത്തരക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുട്ടികൾക്ക് ലോക നിലവാരത്തിൽ വിദ്യാഭ്യാസം ലഭ്യ മാക്കുകയാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളിലൂടെ ഗവൺമെന്റ് ലക്ഷ്യ മിട്ടു ന്ന തെന്ന് പൂ നൂ രിൽ ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു

മലപ്പുറത്ത് ഓണം ബക്രീദ് ഖാദിമേള ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം ഖാദി ഉൽപന്നങ്ങളുടെ ഇടയി ലേക്ക് പർദ്ദയും സഖാവ് എന്ന പുതിയ ഷർട്ടും ഇറ ക്കാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു കോഴി ക്കോട് ഓണം ബ ക്രീദ് ഹാന്റ് ലൂം എക്സ്പോ ഇന്ന് വൈകീട്ട് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ആദ്യവിൽപ്പന ഖാദി ബോർഡ് അംഗം ടി വി ബേബി നടത്തി

എ നായർ ശബരിമല ഉപദേശക സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം പ്രസിഡണ്ട് പി ജി ശശി കുമാര വർമ്മ പറഞ്ഞു അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് പുറത്താക്കാൻ ദേവസംബോർഡ് തയ്യാറാകണമെന്ന് ശശികുമാര വർമ്മ പന്തളത്ത് ആവശ്യപ്പെട്ടു

ഒരാഴ്ചക്ക് ശേഷം സ്ഥിതിഗതികൾ വില യിരുത്തി ഇക്കാര്യത്തിൽ അന്തിമതീരുമാനമെടുക്കും

ലലലലലലലലലലലല രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജന ങ്ങളെ ഭിന്നിപ്പിക്കാൻ സംഘടിത ശ്രമം നടക്കുകയാ ണെന്ന് എം കെ രാഘവൻ എം

മത വിശ്വാസം കൂടുകയും ദൈവവിശ്ചാസം കുറയുകയും ചെയ്തതാണ് ഇത്തരമൊരു സാഹചരൃത്തിന് ഇടയാ ക്കിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

എസ് എഫ് ജില്ലാകമ്മറ്റി സംഘടിപ്പിച്ച മതധ്രുവീകരണത്തിനെതിരായ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

അതിർത്തി ചെക്പോസ്റ്റുകളിൽ ഇതർ സംസ്ഥാന വാഹനങ്ങളുടെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്

ലക്ഷക്കണക്കിന് രൂപ ഇയാൾ തട്ടിയെടുത്തായി പൊലീസ് അറിയിച്ചു

കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് സാരമായി പരിക്കേറ്റു